രാജിയിൽ സ്പീക്കർ തീരുമാനം വൈകിപ്പിക്കുന്നുവെന്ന വിമത എം എൽ എ മാരുടെ ഹർജി സുപ്രീംകോടതി പരിഗണിക്കും ഗോവയിൽ പത്ത് കോൺഗ്രസ് എം എൽ എ മാർ ബി ജെ

യിൽ ചേർന്നു രാജ്യത്തെ അന്തർ സംസ്ഥാന നദീജല തർക്കങ്ങൾ പരിഹരിക്കാൻ ദേശീയതല സ്ഥിരം ട്രിബ്യൂണൽ രൂപീകരിക്കും പോക്സോ നിയമ ഭേദഗതിക്കും ഭിന്നലിംഗക്കാരുടെ അവകാശ സംരക്ഷണ നിയമത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി സഹകരണ വകുപ്പിന്റെ കെയർഹോം രണ്ടാംഘട്ടത്തിലെ ഫ്ളാറ്റ് നിർമാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കും കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡിന്റെ വൈദ്യുതി ഓട്ടോറിക്ഷ നീംജിയുടെ വാണിജൃ നിർമാണം മുഖൃമന്ത്രി ഉദ്ഘാടനം ചെയ്തു ലോകകപ്പ് ക്രിക്കറ്റിൽ ഫൈനൽ കാണാതെ ഇന്ത്യ പുറത്ത് ഇന്ന് രണ്ടാം സെമിയിൽ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ മത്സരം കർണാടകയിൽ ഇന്ന് നിർണായക മന്ത്രിസഭായോഗം

കുമാരസ്വാമി പ്രഖ്യാപിച്ചേക്കുമെന്നാണ് അഭ്യൂഹം ഇന്നലെ രണ്ട് എം

എ മാർകൂടി സ്പീക്കർക്ക് രാജിക്കത്ത് നൽകിയതോടെ വിമത എം എൽ എ

നേരത്തെ രണ്ട് കക്ഷിരഹിത എം

മാരും രാജിവെച്ചിരുന്നു സ്പീക്കർ രാജിയിൽ തീരുമാനം വൈകിക്കുകയാണെന്ന് ആരോപിച്ച് വിമത എം എൽ എ മാർ നൽകിയ ഹർജി ഇന്ന് സുപ്രീംകോടതിയുടെ പരിഗണനയ്ക്ക് വരും നടപടിക്രമ ങ്ങൾ പാലിക്കാതെയാണ് ചില എം എൽ എമാർ രാജിക്കത്ത് നൽകിയ തെന്ന് സ്പീക്കർ അറിയിച്ചിരുന്നു ഇതേത്തുടർന്ന് എട്ട് വിമത എം എൽ എ മാർ ഇന്നലെ പുതിയ രാജിക്കത്ത് സ്പീക്കർക്ക് അയച്ചുകൊടുത്തു രാജിക്കത്തുകൾ പരിഗണിക്കുന്ന കാര്യത്തിൽ ചട്ടങ്ങളും കീഴ്വഴക്ക ങ്ങളും പൂർണമായി പാലിക്കണമെന്നും ഈ നടപടി വേഗത്തിലാക്കാൻ സാധ്യമല്ലെന്നും സ്പീക്കർ രമേഷ് കുമാർ വ്യക്തമാക്കിയിരുന്നു ഇന്നലെ മുംബൈയിൽ വിമത എം എൽ എ മാരെ നേരിൽക്കാണാൻ മന്ത്രി ഡി

ശിവകുമാർ നടത്തിയ ശ്രമം പരാജയപ്പെട്ടിരുന്നു ഭൂരിപക്ഷം നഷ്ട പ്പെട്ട കുമാരസ്വാമി ഗവൺമെന്റിനെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് ഇന്നലെ ബി ജെ

എ മാരുടെയും രാജി സ്വീകരിച്ചാൽ കോൺഗ്രസ് ജനതാദൾ സഖ്യ ഗവൺമെന്റിനെ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം നൂറായി ചുരുങ്ങും അതേസമയം ജനാധിപത്യത്തിന്റെയും രാഷ്ട്രീയ സദാചാരത്തിന്റെയും എല്ലാ അതിർത്തികളും ലംഘിക്കുന്ന നടപടിയാണ് ബി ജെ

കുമാരസ്വാമി ബെംഗളുരുവിൽ കുറ്റ പ്പെടുത്തി

എ മാർ ബി ജെ

യിൽ ചേർന്നു

എൽ എ

ജെ

ഏറ്റവുംവലിയ ഒറ്റകക്ഷിയായിരുന്ന കോൺഗ്രസിന്റെ അംഗ സംഖ്യ അഞ്ചായി കുറ ഞ്ഞു മൂന്നിൽരണ്ട് എം

എ മാരും പാർട്ടിവിട്ടതിനാൽ ഗോവയിലെ നടപടി കൂറുമാറ്റനി രോധന നിയമത്തിന്റെ പരിധിയിൽവരില്ല കോൺഗ്രസ് വിട്ട എം എൽ എമാർ ഇന്ന് ഡൽഹിയിൽ ബി ജെ

അധ്യക്ഷൻ അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തും രാജ്യത്തെ അന്തർസംസ്ഥാന നദീജല തർക്കങ്ങൾ പരിഹരിക്കാൻ ദേശീയതലത്തിൽ സ്ഥിരം ട്രിബ്യൂണൽ രൂപീകരിക്കാൻ കേന്ദ്രമന്ത്രിസ ഭായോഗം അനുമതി നൽകി

പ്രധാനമന്ത്രിയുടെ ഗ്രാമീണറോഡ് നിർമാണ പദ്ധതി ഗ്രാം സഡക്ക് യോജനയുടെ മൂന്നാംഘട്ടത്തിനും മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി

കുട്ടികളോട് ലൈംഗികാതിക്രമം കാണിക്കുന്നവർക്ക് വധശിക്ഷ വൃവസ്ഥ ചെയ്യുന്നതരത്തിൽ പോക്സോ നിയമം ഭേദഗതി ചെയ്യാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ എടുക്കുന്നവർക്ക് കഠിനതടവും പിഴയും ഭേദഗതിയിൽ വൃവസ്ഥ ചെയ്യും ഭിന്ന ലിംഗക്കാ രുടെ അവകാശ സംരക്ഷണത്തിന് നിയമം കൊണ്ടുവരാനും മന്ത്രിസഭ തീരുമാനിച്ചു

അണക്കെട്ടുകളിലേക്ക് നീരൊഴുക്ക് കൂടിയ സാഹചരൃത്തിൽ ഈ മാസം വൈദ്യുതി നിയന്ത്രണം വേണ്ടിവരില്ലെന്ന് കെ എസ്

ബി വില യിരുത്തി

സഹകരണ വകുപ്പിന്റെ കെയർഹോം രണ്ടാംഘട്ടത്തിലെ ഫ്ളാറ്റ് നിർമാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കും മന്ത്രി കടകംപള്ളി സുരേ ന്ദ്രൻ ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർമാരുമായി ഇന്നലെ വീഡിയോ കോൺഫറൻസിങ് നടത്തി ഫ്ളാറ്റ് നിർമാണത്തിന്റെ മേൽനോട്ടത്തിന് ജില്ലാതലങ്ങളിൽ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരി ക്കുമെന്ന് മന്ത്രി പറഞ്ഞു

നിർമാണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഓഗസ്റ്റിൽ തൃശ്ശൂരിൽ നടത്താനാണ് ഉദ്ദേശിക്കുന്നതെന്നും മന്ത്രി വെളിപ്പെടുത്തി

മികച്ച ചെമ്മീൻ കർഷകനായി നീണ്ടകരയിലെ ആർ അജിത്ത് ശുദ്ധജല മത്സ്യ കർഷകനായി വയനാട് പൊഴുതനയിലെ അബ്ദുൾ റഷീദ് ഓരുജല മത്സ്യകർഷകനായി മലപ്പുറം പടിഞ്ഞാറേക്കര നാരായണൻ നൂതന മത്സ്യകൃഷി നടപ്പാക്കിയ ഇടുക്കി നീലിമേൽ ടോമി പീറ്റർ എന്നിവരെ തിരഞ്ഞെടുത്തു മികച്ച അകാ കൾച്ചർ പ്രമോട്ടറായി ് എരുമേലി മണി മല കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തുകളുടെ ചുമതല വഹിക്കുന്ന ഷേർളി ബാബുവിനെയും അവാർഡിന് തിരഞ്ഞെടുത്തു ദേശീയതലത്തിൽ മികച്ച ശുദ്ധജലമത്സൃകർഷകന് പ്രഖ്യാപിച്ച പുരസ്കാരത്തിന് മാനന്ത വാടിയിലെ കെ

കേരള ഓട്ടോ മൊബൈൽസ് ലിമിറ്റഡിന്റെ വൈദ്യുതി ഓട്ടോറിക്ഷ നീം ജി യുടെ വാണിജ്യ നിർമാണം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു കേരളം വൈദ്യുതി വാഹന ങ്ങളുടെ നാടായി മാറാൻ പോവുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്ത് ഉവൈദ്യുതി വാഹനങ്ങൾക്കായി എല്ലായിടത്തും ചാർജ്ജിങ് സ്റ്റേഷനുകൾ ആരംഭിക്കും ഇതിന് തുടക്കമായി സെക്രട്ടേ റിയേറ്റിൽ ആദ്യ സ്റ്റേഷൻ ആരംഭിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു സ്ഥാപ നത്തിലെ നവീകരിച്ച മെഷീൻ ഷോപ്പും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു

ദേശീയ കോക്കനട്ട് ചലഞ്ച് മത്സര ത്തിനും തുടക്കമായി നാളികേര രംഗത്തെ നൂതന ആശയങ്ങളും കണ്ടെ ത്തലുകളും പരിപോഷിപ്പിക്കുന്നതിനാണ് മത്സരം സംഘടിപ്പിക്കുന്നത് ലോകകപ്പ് ക്രിക്കറ്റിൽ ഫൈനൽ കാണാതെ ഇന്ത്യ പുറത്തായി

തുടർച്ചയായ രണ്ടാംതവ ണയാണ് ഇന്ത്യ ലോകകപ്പ് സെമി തോൽക്കുന്നത് മൂന്ന് വിക്കറ്റ് വീഴ്ത്തിയ കീവിസിന്റെ മാറ്റ് ഹെൻറി യാണ് കളിയിലെ താരം ലോക കപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയുടെ തോൽവി നിരാശാജനകമാണെങ്കിലും ടീമിന്റെ പോരാട്ടവീര്യം അഭിനന്ദനാർഹമാണെന്ന് പ്രധാനമന്ത്രി നരേ ന്ദ്രമോദി അഭിപ്രായപ്പെട്ടു തോൽവിയും ജയവും ജീവിതത്തിന്റെ ഭാഗ മാണെന്നും ഇന്ത്യൻ ടീമിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നതായും മോദി ടിറ്ററിൽ കുറിച്ചു ഇന്ന് രണ്ടാം സെമിയിൽ ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് മത്സരം നടക്കും ഏഡ്ബാസ്റ്റണിലാണ് ഇന്ത്യൻസമയം ഉച്ചയ്ക്ക് മൂന്നിന് മത്സരം ആരംഭിക്കുന്നത് ഇതോടെ രണ്ടാം ഫൈനലിസ്റ്റുകൾ ആരാ ണെന്ന് വൃക്തമാകും ഇന്നും മഴയ്ക്ക് സാധൃതയുണ്ടെന്നാണ് കാലാ വസ്ഥാ പ്രവചനം കേന്ദ്രഗവർണ്മെന്റിന്റെ ജലസംഭരണ പൃദ്ധതി ജലശക്തി അഭിയാൻ നടപ്പാക്കുന്ന പാലക്കാട് ജില്ലയിലെ പ്രദേശങ്ങൾ ഇന്നും നാളെയുമായി കേന്ദ്ര സംഘം സന്ദർശിക്കും

മറ്റന്നാൾ ജില്ലാ കലക്ടറുമായും വിവിധ ജില്ലാ മേധാവികളുമായും കേന്ദ്രസംഘം ചർച്ച നടത്തും കുട്ടികൾക്കെതിരായ അതിക്രമം സംബന്ധിച്ച പരാതികൾ സ്വീകരി ക്കാൻ ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മിഷൻ സിറ്റിങ് നാളെ വയനാട്ടിൽ നടത്തും രാവിലെ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലാണ് സിറ്റിങ് വ്യക്തികൾക്കും സംഘടനകൾക്കും കുട്ടികൾക്കും നേരിട്ടോ അല്ലാതെയോ പരാതികൾ നൽകാവുന്നതാണ്

മോഹനദാസിന്റെ നേതൃത്വത്തിലായിരുന്നു അദാ ലത്ത്

അർഹരായവർക്ക് വിദ്യാഭ്യാസപരമായ ആനു കൂലൃങ്ങൾ സ്കൂൾ അധികൃതർ നിഷേധിക്കരുതെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകി

എസ് എൽ

ഇന്നും നാളെയും മൂന്ന് വിമാനങ്ങൾ വീതം സർവ്വീസ് നടത്തും മദീനയിൽ എത്തിയ ഹാജിമാർ ്എട്ട് ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി അടുത്ത ആഴ്ച മുതൽ മക്കയിലേക്ക് നീങ്ങിത്തുടങ്ങും ജലസ്രോതസ്സുകൾ മലിനമാക്കുന്നവർ തമിഴ് ജനത ഇപ്പോഴനുഭവി ക്കുന്ന കൊടും വരൾച്ചയെക്കുറിച്ച് ഓർമ്മിക്കണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് വി

പ്രകൃതിയോട് കാണിക്കുന്ന ക്രൂരതയ്ക്ക് പ്രകൃതിയുടെ തിരിച്ചടി ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞൂ